ഇന്തൃയിൽ അടുത്ത രണ്ട് വർഷങ്ങ ളിൽ പതിനായിരംകോടി ഡോളറിന്റെ നിക്ഷേപത്തിനും ധാരണയാ യി ഹജ്ജ് കാട്ട രണ്ട് ലക്ഷമായി വർധിപ്പിക്കും രണ്ട്ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷി ണകൊറിയയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സ്വപ്നം കാണാൻകഴിയാത്ത നേട്ടം ആയിരംദിവസംകൊണ്ട് കേരളം കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗതിരഹിത കേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും

ദേശീയ യൂത്ത് അത്ലറ്റിക്സ് മീറ്റിൽ കേരളത്തിന് ഒരു സ്വർണംകൂ ടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് തടവുകാരെ വിട്ടയക്കാൻ സൌദി രാജകുമാരൻ തയ്യാറായതെന്ന് വിദേശ കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു സൌദി അറേബൃയിൽ ഒരു വിദേശകമ്പനി അടച്ചുപൂട്ടിയതിനെത്തുടർന്ന് ഒറ്റപ്പെട്ട ഇന്ത്യൻ തൊഴിലാ ളികളുടെ പ്രശ്നം പരിഹരിക്കാമെന്നും സൌദി രാജകുമാരൻ അറിയിച്ചു

ഇപ്പോൾ ഒന്നേമുക്കാൽ ലക്ഷമാണ് ഇന്ത്യയുടെ ഹജ്ജ് കാട്ട ഇന്ത്യയിൽ പതിനായിരംകോടി ഡോളർ അടുത്ത രണ്ട് വർഷങ്ങളായി ഊർജ്ജ നിർമാണ മേഖലകളിൽ നിക്ഷേപിക്കാനും സൌദി രാജകുമാരൻ സന്നദ്ധത അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടുദിവസത്തെ ദക്ഷിണകൊറിയ സന്ദർശ നത്തിന് സോളിലെത്തി ദക്ഷിണകൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഈ നുമായി ഉച്ചകോടി ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കൊറിയൻ രാഷ്ട്രീയ നേതാക്കളുമായും വ്യവസായികളുമായും അവിടത്തെ ഇന്ത്യൻ സമൂഹവുമായും കൂടിക്കാഴ്ച നടത്തും അടിസ്ഥാന സൌകര്യവികസനത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത മുന്നേറ്റമാണ് ആയിരംദിവസംകൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് പറഞ്ഞു

ഡി എഫ് ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഒന്നും നടക്കി ല്ലെന്ന മനോഭാവം മാറ്റി വികസന പദ്ധതികൾ ഓരോന്നായി ഗവൺമെന്റ് പൂർത്തീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇന്തൃയിലെ ഏറ്റവും അഴിമതികുറഞ്ഞ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് വലിയ നേട്ടമാ ണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ആരോഗ്യ പൊതുവിദ്യാഭ്യാസ മേഖ ലയിൽ അനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞ തായും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം പുതിയ വിദ്യാർഥികൾ പൊതു വിദ്യാലയങ്ങളിൽ എത്തിയതായും മുഖ്യമന്ത്രി അവകാശപ്പെ ട്ടു ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് കോഴിക്കോട്ട് വികസനസെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട് സേഫ് കേരള പദ്ധതി മുഖ്യമന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു അശ്ര ദ്ധകൊണ്ട് റോഡിൽ അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ സംരക്ഷിക്കു ന്നതിന് മുഖ്യപരിഗണന നൽകിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ആയിരം ദിനാഘോഷത്തിന്റെ ഇടുക്കിജില്ലാതലചടങ്ങ് മന്ത്രി എം

മലയോര കർഷകന്റെ ആത്മാഭിമാനമു ണർത്തുന്ന കുടിയേറ്റ സ്മാരക മ്യൂസിയത്തിന് മന്ത്രി തറക്കല്ലിട്ടു

പവർഹൌസുകൾ രാത്രിയും പ്രവർത്തന ക്ഷമമാക്കുന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതിക്ഷാമം പരിഹരിക്കാനാ കുമെന്നും എം

ആയിരംദിനാഘോഷവേദിയിൽ ഇന്ന് ഇടുക്കി പാക്കേജിൽ ജില്ലാതല സെമിനാർ നടത്തും വൈകിട്ട് കേരള വോളി ബോൾ അക്കാദമി മന്ത്രി എം

ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാവാത്ത നേട്ട ങ്ങൾ ആയിരംദിവസംകൊണ്ട് കേരളാ മന്ത്രിസഭയ്ക്ക് കൈവരിക്കാനായെന്ന് മന്ത്രി കെ

ആയിരം ദിനാഘോഷത്തിന്റെ പാല ക്കാട് ജില്ലാതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുമന്ത്രി

ബാലൻ അധ്യക്ഷനായിരുന്നു രണ്ടു വർഷത്തിനകം സംസ്ഥാനത്തെ ആറായിരം റോഡുകൾ പുനർനിർമിക്കുമെന്ന് മന്ത്രി എ

ആയിരം ദിനാ ഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് അയ്യപ്പൻകാവിൽ ലെഫ്റ്റനന്റ് കേണൽ ഇ

നിരഞ്ജൻ സ്മാരക റോഡ് നിർമാണം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി വിവിധ മേഖലകളിൽ കേർളം പുലർത്തുന്ന വികസന മാതൃകകൾ തുട രുകതന്നെ ചെയ്യുമെന്ന് മന്ത്രി എ

മൊയ്തീൻ കൊച്ചിയിൽ പറഞ്ഞു ഇതുവഴി കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച് നവകേരള നിർമാ ണമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം

കണ്ണൂർ തളിപ്പറമ്പിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായശാല തുടങ്ങുമെന്ന് മന്ത്രി ഇ

കണ്ണൂർ കാസർകോട് ജില്ല കളിലെ കർഷകരിൽനിന്ന് വിപണി വിലയെക്കാൾ കൂടുതൽ വില നൽകി ഇതിനായി റബ്ബർ സംഭരിക്കും ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങൾ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മട്ടന്നൂരിലെ കിൻഫ്ര പാർക്കിൽ ബാറ്ററി ഉപയോഗിച്ച് ഓടിക്കാവുന്ന ഇലക്ട്രോണിക് വാഹന നിർമാണ യൂണിറ്റ് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

രാജു ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷപരിപാടികളുടെ ജില്ലാ തല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആഘോഷ പരിപാടിയുടെ കാസർകോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് കാസർകോട്ട് പുലിക്കുന്നിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹി ക്കും കാസർകോട് കണക്ട് എന്ന മൊബൈൽ ആപ്പ് ചടങ്ങിൽ പ്രകാ ശനം ചെയ്യും കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ വൈകീട്ട് ജില്ലാതല നിക്ഷേ പസംഗമം മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ആശ്രയമറ്റവരെയും സഹായത്തിന് ആരും ഇല്ലാത്തവരെയും സമൂഹ ത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ ആവിഷ്കരിച്ച അഗതിരഹിത കേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കും കുടുംബശ്രീയുടെയും തദ്ദേശസ്ഥാപ നങ്ങളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കൽപ്പറ്റയിൽ മന്ത്രി എ

കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം സർക്യൂട്ടിന്റെ പ്രവൃത്തി കണ്ണൂർ തളിപറമ്പ് കുപ്പത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സദാശിവം ആദ്യസമുച്ച യത്തിന്റെ നിർമാണത്തിന് തുടക്കംകുറിക്കും ശ്രീനാരായണഗുരുവിന്റെ പേരിലാണ് കൊല്ലത്തെ സമുച്ചയം

രാജ്യത്തിലെ ആദ്യ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് നാളെ വൈകീട്ട് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്പിടും

പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടു ത്തിയ കേസിൽ ഒരാൾകൂടി അറസ്റ്റിലായി കല്യോട്ട് സ്വദേശി സജി ജോർജ് ആണ് പിടിയിലായത് പ്രതികൾക്ക് വാഹനം സംഘടിപ്പിച്ചുകൊടുത്തത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു

ചെന്നൈയിൽ പ്രോ വോളി ലീഗിൽ കാലിക്കറ്റ് ചെന്നൈ കലാശപ്പോ രാട്ടം നാളെ നടക്കും ഇന്നലെ രണ്ടാം സെമിയിൽ കൊച്ചി ബ്ലൂ സ്പൈക്കേ ഴ്സിനെ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് കീഴടക്കിയാണ് ചെന്നൈ സ്പാർട്ടൻസ് ഫൈനലിലെത്തിയത്

രാവിലെ ഹോം ഗാർഡ് സംസ്ഥാന സമ്മേളനം ചക്കരക്കല്ലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സി

എം കുടംബയോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കും

ഉച്ചയ്ക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർമാണം ഉദ്ഘാടനം ചെയ്യും കേരള മീഡിയ അക്കാദമി പത്രപ്രവർത്തക ്യൂണിയന്റെയും പി ആർ

യുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മാധൃമചരിത്രയാത്ര ഇന്ന് വൈകിട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരം പേട്ട കൌമുദി ഓഫീസ് വളപ്പിൽ ഉദ്ഘാടനം ചെയ്യും നെയ്യാറ്റിൻകരയിൽ സ്വദേ ശാഭിമാനി രാമകൃഷ്ണപ്പിള്ള പിറന്നു വീടുമുതൽ ആദ്യ മലയാള പത്രമു ണ്ടായ തലശ്ശേരി ഇല്ലിക്കുന്ന് ഗുണ്ടർട്ട്ഭവൻവരെയാണ് യാത്ര മാർച്ച് ഒന്നിന് സമാപിക്കുന്ന യാത്രയിൽ മാധൃമപ്രവർത്തകരും അറുപത് മാധൃമ വിദൃാർഥി കളുമാണ് പങ്കെടുക്കുന്നത്

ദിനാചരണത്തിന്റെ ഭാഗമായി മലയാള ഭാഷയുടെ വ്യാകരണം ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കേരള പാണിനി എ

രാജരാജവർമ്മയുടെ സമ്പൂർണ കൃതികൾ കേരളഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും ശ്രേഷ്ഠഭാഷാ പുര സ്കാരം നേടിയ ഡോ

പ്രബോധചന്ദ്രൻനായരെ ചടങ്ങിൽ ആദ രിക്കും ഉത്തരകേരളത്തിലെ അയ്യപ്പഭക്തരും ഹൈന്ദവ വിശ്വാസികളും സമ്മേ ളിക്കുന്ന ഹൈന്ദവം അയ്യപ്പഭക്തസംഗമത്തിന് കോഴിക്കോട്ട് പതാക ഉയർന്നു ചിന്മയമിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി ജിതാത്മാനന്ദ പതാക ഉയർത്തി

ഹിൽടോപ്പിൽനിന്നാണ് റോപ്പ് വേ ആരംഭിക്കുന്നത്